സംസ്ഥാനത്ത് പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് മൂന്ന് വർഷത്തെ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ വേണമെന്ന് മുഖ്യമന്ത്രി

കർഷകരുടെ പ്രശ്നങ്ങളിൽ ്ബാങ്കുകൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുള്ള സമീപന്ന് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി

ഹയർസെക്കൻഡറി പിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുകയാണ് ഖാദ്ദർ കമ്മിറ്റി റിപ്പോർട്ട് ലക്ഷ്യമിടുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി

സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചുമതലയേറ്റു

പ്രളയം മുഖ്യമന്ത്രി സംസ്ഥാനത്തുണ്ടായ പ്രളയ ദുരന്തം മറികടക്കാൻ മൂന്നുവർഷത്തെ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ വേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

നിയമസഭയിൽ അടിയന്തരപ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം

പരിസ്ഥിതി സൌഹാർദ്ദവും അതിജീവനക്ഷമതയുള്ളതുമായ കേരളം എന്ന ലക്ഷ്യത്തിലേയ്ക്കുള്ള മാർഗ്ഗരേഖയാണ് റീബിൽഡ് കേരള പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി

സതീശൻ കുറ്റപ്പെടുത്തി

മത്സ്യ്ത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നിൽകി സന്നദ്ധ സേന രൂപീകരിച്ച് വരികയാണ് ദുരന്ത പ്രതിരോധത്തിന് ഫയർഫോഴ്സിനെ ശക്തിപ്പെടുത്തുമെന്നും റവന്യൂമന്ത്രി പറഞ്ഞു സഭ വിദ്യാഭ്യാസമന്ത്രി പ്രീപ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനായി അധ്യാപർക്ക് പരിശീലനം നൽകിവരുന്നുണ്ടെന്ന് മന്ത്രി സി

കരിക്കുലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ്

ടി തയ്യാറാക്കിയ കൈപുസ്തകം അധ്യാപകർക്കും പ്രീ പ്രൈമറി സ്കൂളുകളിലെ മൂന്ന് നാല് വയസ്സുകാരായ കുട്ടികൾക്കും നൽകിവരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ആർ മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് നിതി അയോഗ് പൊതുജനാരോഗ്യരംഗത്ത് കേരളം ഒന്നാം സ്ഥാനത്തെന്ന് നിതി അയോഗ് ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്രയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ആരോഗ്യമുള്ള സംസ്ഥാനങ്ങൾ മുന്നേറുന്ന ഇന്ത്യ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി നിതി അയോഗ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ രണ്ടാമത്തെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം അറിയിച്ചത്

സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണപ്രദേശങ്ങളുടെയും പ്രവർത്തനങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്

കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരി ഹരിക്കാൻ ബാങ്കുകൾ യാഥാർഥ്യം ഉൾക്കൊണ്ടുള്ള സമീപനം സ്വീകരി ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങാകേണ്ട സാമൂഹ്യബാധ്യത ബാങ്കിംഗ് മേഖലയ്ക്കുണ്ട്

ആശങ്കകൾ ആവശ്യ മില്ലെന്നും മോറട്ടോറിയം ദീർഘിപ്പിച്ച നടപടിയെ ബാങ്കേഴ്സ് സമിതി അംഗീകരിച്ചിരിക്കുകയാണെന്നും യോഗത്തിനുശേഷം മന്ത്രി വി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വരുമാന പരിധി വർധിപ്പിച്ചതിലൂടെ പാവപ്പെട്ട നിരവധി പേർക്ക് സഹായം ലഭ്യമാകുമെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു

ജില്ലാ സാമൂഹൃനീതി ഓഫീസുകളിൽ നിന്നും ഇതിനുള്ള അപേക്ഷാ ഫോം ലഭിക്കും

എഫ് ധർണ സംസ്ഥാനത്തെ കർഷകരുടെ കാർഷിക് വായ്പ്പയിൻ മേലുള്ള ജപ്തി നടപടികൾ മരവിപ്പിക്കണമെന്നാവശൃപ്പെട്ട് യു ഡി എഫ് എം പിമാർ പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി കർഷകരുടെ ആത്മഹത്യ തടയാൻ ന്ടപടി എടുക്കണമെന്നും എം പിമാർ ആവശ്യപ്പെട്ടു

സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ കെ

മോഹൻകുമാറിനും മറ്റ് അംഗങ്ങൾക്കും ഭക്ഷ്യവകുപ്പ് മന്ത്രി പി

പൊതുവിതരണ രംഗത്ത് കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ കമ്മീഷനിലൂടെ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

കൺവൻഷൻ സെന്ററിന്റെ നിർമ്മാണത്തിൽ യാതൊരു അപാകതയു മില്ലാതിരുന്നിട്ടും മനപൂർവ്വം അനുമതി നിഷേധിച്ചതിനെത്തുടർന്നായിരു ന്നു പ്രവാസി ആത്മഹത്യ ചെയ്തത് ദുഖകരമായ ഈ സംഭവം ഉണ്ടാ യി ഒരു ആഴ്ച പിന്നിട്ടിട്ടും കൺവെൻഷൻ ഉസന്ററിന് അനുമതി നൽകി യിട്ടില്ല എന്നത് പ്രതിഷേധാർഹമായ കാര്യമാണ്ണെന്ന് ശ്രീ ചെന്നിത്തല പറഞ്ഞു വയോമിത്രം പദ്ധതി കേരള സാമൂഹിക സുരക്ഷാമിഷൻ നടപ്പിലാക്കുന്ന വയോമിത്രം പദ്ധതിക്ക് കോട്ടയം കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം കുറിക്കുന്നു

അപേക്ഷകർ അതത് ഓഫീസുകളിൽ ഹാജരായി അദാലത്തിൽ പങ്കെടുക്കണമെന്ന് മേയർ അറിയിച്ചു

ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മരുന്ന് സ്റ്റെന്റ് വിതരണക്കാരുടെ പ്രതിനിധികളുമായുള്ള ചർച്ചയിലാണ് തീരുമാനം

കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ നാളെയും മറ്റെന്നാളുമാണ് പരിപാടികൾ പ്രചാരണ പരിപാടി പരീക്ഷകളിൽ മാർക്ക് കുറയുന്നതിലൂടെ വിദ്യാർഥികൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ പരിഹരിക്കാനും തുടർ പരിശ്രമങ്ങൾക്ക് പര്യാപ്തമാക്കാനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വിപുലമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും